എസ്

ഭാവിയെ നല്ല സാധാരണ അവസ്ഥയിലേക്ക് രൂപപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിപാടിയുടെ പ്രമേയം

മേള മറ്റന്നാൾ സമാപിക്കും തമിഴ്നാട്ടിലെ രാമനാഥപുരം തൂത്തുകുടി പാചകവാതക പൈപ്പ്ലൈൻ പദ്ധതിയും മണലിയിൽ ചെന്നൈ പെട്രോളിയം കോർപറേഷൻ ലിമിറ്റഡിൻെറ ഗ്യാസോലൈൻ ഡിസൾഫ്യൂരിക്കേഷൻ യൂണിറ്റും പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും

ഐകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് തുടക്കമിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അഞ്ച് പുതിയ ഐ

ഐകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ഐകൾ വൈകാതെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമെന്നും ഇവ രാജ്യത്തെ മുൻനിര വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളായി അറിയപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊല്ലത്തെ പോരുവഴി കുളത്തൂപ്പുഴ ഇടുക്കിയിലെ ഏലപ്പാറ കരുണാപുരം മലപ്പുറത്തെ വാഴക്കാട് ഐ

ദ്ദേ ഉന്നത വിദ്യാഭ്യാസരംഗത്ത് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വികസനമാണ് കഴിഞ്ഞ നാലുവർഷക്കാലത്ത് സാധ്യമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇടുക്കി മഞ്ചുമല എയർ സ്ട്രിപ്പ് ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദേഹം

ദ്ദേ പ്രതിസന്ധികൾക്കിടയിലും ഭാവി തലമുറയ്ക്കായി ഗവൺമെന്റ് നൽകിയ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ കരുത്തേകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട് ഗവൺമെന്റ് വനിത പോളിടെക്നിക്കിലെ വർക്ക് ഷോപ്പ് ഡ്രോയിങ് ഹാൾ ലബോറട്ടറി ബ്ലോക്ക് എന്നിവയുടെ ശിലാസ്ഥാപനം ഓൺലൈൻ വഴി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദേദ പൂന്തുറ ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന്റെയും കൃത്രിമപാര് നിക്ഷേപിക്കലിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു തീരം നിലനിർത്താൻ കരിങ്കല്ലിനു ബദൽ എന്ന നിലയിലാണ് ജിയോ ട്യൂബ് ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ നിർമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പരമ്പരാഗത കരിങ്കൽ കടൽഭിത്തി കൊണ്ട് കടൽക്ഷോഭം തടയാനാകില്ലെന്ന് കണ്ടാണ് പുതിയ മാർഗം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ആലപ്പുഴയിൽ പത്തും ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ എട്ടുവീതവും കോട്ടയത്ത് ഏഴും കൊല്ലത്തും തൃശൂരും അഞ്ചുവീതവും തിരുവന്തപുരത്ത് നാലും പത്തനംതിട്ട കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മൂന്നുവീതവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടെ സംസ്ഥാനത്തെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറും ദേദ നിയമന ലിസ്റ്റിന്റെ പേരിൽ പ്രതിപക്ഷം നടത്തുന്ന സമരം ഉദ്യോഗാർഥികളുടെ താത്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

എഫിന് എതിരെ അപവാദ പ്രചാരണങ്ങൾ പൊളിഞ്ഞപ്പോഴാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം രംഗത്ത് വരുന്നത് ഈ സമരത്തെ പിന്തുണക്കാൻ ഒരു മുൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയത് ആശ്ചര്യകരമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യുഡിഎഫിന്റെ കാലത്തേതിനേക്കാൾ നിയമനം എൽഡിഎഫ് നടത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ച് യോഗ്യരായ താത്കാലിക ജീവനക്കാരെയാണ് എൽ

എഫ് ഗവൺമെന്റ് സ്ഥിരപ്പെടുത്തിയതെന്നും യുഡിഎഫിന്റെ കാലത്ത് മാനദണ്ഡങ്ങൾ ഇല്ലാതെ ആറായിരത്തോളം സ്ഥിര നിയമനങ്ങൾ നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവരുന്ന പി എസ് സി ഉദ്യോഗാർഥികളുമായി ചർച്ചക്ക് മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഉദ്യോഗാർഥികളുമായി ചർച്ച നടത്താൻ ഡി

ഐ നേതാക്കളെ അയച്ച നടപടി ജനാധിപത്യ സംവിധാനങ്ങളെ അവഹേളിക്കലാണെന്നും മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ ന്യായമാണെന്ന് കോടതിക്ക് വരെ ബോധ്യമായിട്ടും പിൻതിരിയാൻ തയാറല്ലെന്ന ഗവൺമെന്റ് നിലപാട് യുവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും വി

എഫ് അധികാരത്തിലെത്തിയാൽ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിയമനിർമാണം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് പറഞ്ഞു ഐശ്വര്യ കേരളയാത്രയുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദേഹം രാജ്യത്തിനാകെ മാതൃകയായിരുന്ന പി

സിയുടെ വിശ്വാസ്യത എൽ

എഫ് ഗവൺമെന്റ് നശിപ്പിച്ചതായി യോഗത്തിൽ സംസാരിച്ച കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

എഫ് കൺവീനർ എ

സിപിഐ ദേശീയ സെക്രട്ടറിയേറ്റംഗം ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും അടിമാലി നെടുങ്കണ്ടം കട്ടപ്പന എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ട് നാലിന് വണ്ടിപ്പെരിയാറിൽ സമാപിക്കും

സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ നാലായിരം കടന്നു

ദേദ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തുനിന്ന് ഡോക്ടർ കിരൺ ബേദിയെ രാഷ്ട്രപതി നീക്കി തെലങ്കാന ഗവർണർ തമിളിസൈ സൌന്ദരരാജന് പുതുച്ചേരിയുടെ അധിക ചുമതല നൽകിയതായി രാഷ്ട്രപതി ഭവൻ അറിയിച്ചു ദര കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ കൊച്ചി പതിപ്പിന് ഇന്ന് തിരിതെളിയും മന്ത്രി എ കെ ബാലൻ മേള ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി പനജിയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളിനാണ് ഹൈദരാബാദ് എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ തകർത്തത്

സി ഗോവ ഒഡീഷ എഫ് സിയെ നേരിടും ദേദ ബെംഗളുരുവിൽ കാഴ്ചപരിമിതരുടെ മൂന്നാമത് നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആന്ധ്രപ്രദേശ് ജേതാക്കളായി

ദേദ കാലിക്കറ്റ് യൂനിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംസ്ഥാന അത് ലറ്റിക് മീറ്റിൻെറ രണ്ടാം ദിനം ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ എറണാകുളം മുന്നേറി

തുടർച്ചയായ പത്താം ദിവസമാണ് ഇന്ധനവിലയിൽ വർധനയുണ്ടാവുന്നത് ദ്ദേ ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ആർ എസ് ശിവാംബികയുടെ മൃതദേഹം ഇന്ന് രാവിലെ ഒൻപതിന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും കോഴിക്കോട് കണ്ണൂർ നിലയങ്ങളിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്

ദേദ സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകൾ അർബൻ സഹകരണ ബാങ്കുകൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാർക്കറ്റ് ഫെഡ് എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ദേദ ശാസ്ത്രീയമായ കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിലൂടെ കശുവണ്ടി മേഖലയിലെ തോട്ടണ്ടി ലഭ്യതക്കുറവിന് പരിഹാരം കാണാനാകുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ എഴുകോൺ ഇരുമ്പനങ്ങാട് പി

ദേദ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹായത്തോടെ നിർമ്മാണം പുർത്തിയാക്കിയ കോവിഡ് ഐ

യു ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തനം തുടങ്ങുന്ന സ്ട്രോക്ക് യൂണിറ്റിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി ദ്ദേ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമമനുസരിച്ച് ജി

എസ് ട്രാക്കിംഗ് മാനേജ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി പി തിലോത്തമൻ ഇന്ന് ഓൺലൈനിൽ നിർവഹിക്കും ഭക്ഷ്യധാന്യം കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സുതാര്യത ഉറപ്പാക്കാനും ജി

എസ് വെഹിക്കിൾ ട്രാക്കിംഗ് സംവിധാനം സഹായിക്കും